തന്തി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ

ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് സന്നിധാനത്തെ പുതിയ മേൽശാന്തിയായി എം

വാസു ദേവൻ നമ്പൂതിരിയും മാളികപ്പുറത്തെ മേൽശാന്തിയായി എം

നാരായണൻ നമ്പൂതിരിയും ചുമതലയേൽക്കും നാളെ വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറ ക്കുന്നത്

ശബരിമലയിൽ ദ്രതീർത്ഥാടകർക്ക് ഒരുക്കിയ സൌകര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിലയ്ക്കലിലെ ത്തി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതാണ് ശബരിമല നേരി ടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു തീർത്ഥാടകരുമായി കെ എസ് ആർ ടി സി ബസുകൾ നില യ്ക്കലിൽ നിന്ന് അല്പം മുമ്പ് സർവീസ് ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു ശബരിമല ദർശനത്തിന് നെടുമ്പാശ്ശേരിയിലെത്തിയ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിക്കും സംഘത്തിനും ഇതു വരെ വിമാനത്താവളത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് ഇന്നു പുലർച്ചെ നാലരയോടെയാണ് പൂനെയിൽ നിന്ന് ആറംഗ സംഘം എത്തിയത്

ആക്ടിവിസ്റ്റിന്റെ വേഷത്തിൽ ശബ രിമല ദർശനത്തിനെത്തിയ തൃപ്തി ദേശായിയെ തിരികെ അയ ക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി കൈക്കൊള്ളണം സമാ ധാനപരമായ രീതിയിലായിരിക്കും ശബരിമല് പ്രക്ഷോഭമെന്നും അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തൃപ്തി ദേശായിയെ ശബരിമലയിലെത്താൻ വിശ്വാസികൾ അനുവദിക്കില്ലെന്ന് മാളികപ്പുറം മേൽശാന്തി അനീഷ് നമ്പൂതിരി പമ്പയിൽ പറഞ്ഞു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കരുതെന്നാണ് ആഗ്രഹമെന്നും യുവതീ പ്രവേശനത്തെ ഇപ്പോഴും താൻ ശക്തമായി എതിർക്കുന്നുണ്ടെന്നും മേൽശാന്തി വ്യക്തമാക്കി ശബരിമല് ദർശനത്തിന് എത്തിയ തൃപ്തി ദേശായിയുടെ സുരക്ഷാ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ശബരിമല ഡ്യൂട്ടിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചതിന് ശേഷമേ ഇക്കാര്യ ത്തിൽ അന്തിമ തീരുമാനം എടുക്കൂവെന്ന് അദ്ദേഹം മാധ്യമ ങ്ങളോട് പറഞ്ഞു ശബരിമലയിൽ വാഹനങ്ങൾക്ക് പാസ് ഏർപ്പെടുത്തിയ തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഭക്ത രുടെ വാഹനങ്ങൾക്ക് പുറപ്പെടുന്ന സ്ഥലത്തെ പൊലീസ് സ്റ്റേഷ നിൽ നിന്ന് പാസ് വാങ്ങണമെന്ന വ്യവസ്ഥക്കെതിരെ കാക്കനാട് സ്വദേശി നല്കിയ ഹർജിയാണ് പരിഗണിക്കുന്നത്

പൊലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി നിർദേശം നൽകി

സമൂഹ മാധ്യമങ്ങളിൽ അയ്യപ്പ വേഷത്തിൽ രഹ്ന മതവികാരം പ്രണപ്പെ ടുത്തുന്ന ഫോട്ടോ ഇട്ടെന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് പൊലീസ് കേസെടുത്തത് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി ഉച്ചു കഴിഞ്ഞ് തിരുവ നന്തപുരത്ത് ചേരും ശബരിമല വിഷയവും മന്ത്രി കെ ടി ജലിലീ നെതിരായ ആരോപണങ്ങളും ചർച്ച ചെയ്യും ശബരിമല വിഷയ ത്തിൽ കോൺഗ്രസ് നടത്തിയ അഞ്ച് മേഖലാ ജാഥകളുടെ അവ ലോകനവും യോഗത്തിലുണ്ടാകും

മരിച്ചവരുടെ ആശ്രിതർക്ക് തമിഴ്നാട് ഗവ

ഇതിന്റെ സ്വാധീനത്താൽ കനത്ത മഴയും പെയ്യു ന്നുണ്ട് നാഗപട്ടണം കാരയ്ക്കൽ ജില്ലകളിൽ വൻ തോതിൽ വീടു കൾ തകരുകയും മരങ്ങളും വൈദ്യുതി ടെലിഫോൺ പോസ്റ്റുകളും കടപുഴകുകയും ചെയ്തു കഡലൂർ നാഗപട്ടണം തോണ്ടി പാമ്പൻ പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്

ഇന്ന് വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റ് പടിഞ്ഞാറൻ ഭാഗത്തേക്കു നീങ്ങി ദുർബലമായേക്കുമെന്നാണ് സൂചന ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തകരും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ് സ്കൂളുകൾക്കും കോളെജുകൾക്കും ഗവി ഇന്നലെത്തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ന് മലപ്പുറം പാലക്കാട് തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

കടലിൽ പോയവർ വൈകുന്നേരം തന്നെ സുരക്ഷിത ്തീരങ്ങളിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ ആവ ശ്യപ്പെട്ടു അതേസമയം ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും പൊലീസ് ഫയർ ഫോഴ്സ് കെ എസ് ഇ ബി വകുപ്പുകൾക്കും ഗവ

സിബിഐ ഡയറക്ടറായിരുന്ന അലോക് വർമ്മക്ക് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകാൻ സുപ്രീംകോടതി നിർദേശിച്ചു

പ്രാഥ മിക റിപ്പോർട്ടിൽ അലോക് വർമ്മക്ക് അനുകൂലമായ കാര്യങ്ങളു ണ്ടെന്നും എന്നാൽ ചില ആരോപണങ്ങളിൽ വിശദമായ അന്വേ ഷണം ആവശ്യമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു മറുപടി തിങ്കളാഴ്ചക്കകം മുദ്രവെച്ച കവറിൽ നൽകാനും കോടതി അലോക് വർമ്മയോട് ആവശ്യപ്പെട്ടു റിപ്പോർട്ടിന്റെ കോപ്പി അറ്റോർണി ജനറലിനും സോളിസിറ്റർ ജനറലിനും നൽകാനും നിർദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ കോപ്പി വേണമെന്ന സിബിഐ സ്പെഷൽ ഡയറക്ടറായിരുന്ന രാകേഷ് അസ്താന യുടെ ആവശ്യം കോടതി തള്ളി കേസ് വീണ്ടും ചൊവ്വാഴ്ച പരി ഗണിക്കും

പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സരിതാദേവിയും മനീഷയും ഇന്നി റങ്ങും ആറാം കിരീടം ലക്ഷ്യമിടുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് എം സി മേരികോം ആണ് ഇന്ത്യൻ താരങ്ങളെ നയിക്കുന്നത്

കോർപ്പറേ ഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സ രം നാളെ രാവിലെ കോഴിക്കോട്ടെത്തുന്ന മിനർവ്വ ടീം വൈകീട്ട് പരിശീലനത്തിനിറങ്ങും

ആഗോള വിപണിയിൽ ക്രൂഡോയിൽ വിലയിലെ ഇടിവാണ് ഇന്ധനവില കുറയാൻ കാരണം കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സ രങ്ങൾ വടകരയിൽ ബുധനാഴ്ച തുടങ്ങും

സ്റ്റേജിനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ നാളെ നടക്കും ഇന്നലെയോടെ രചനാ മത്സരങ്ങൾ പൂർത്തിയായി

ഗണിത ശാസ്ത്ര സാമൂഹികശാ സ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേളകളും ഇതോടൊപ്പം നടക്കും

മലയാള സിനിമയിലെ അനശ്വരനായ ജനപ്രിയ നടൻ ജയന്റെ ഓർമ്മയിൽ ഇന്ന് കോഴിക്കോട്ട് ജയൻ സ്മൃതി സംഘടിപ്പിക്കും വൈകീട്ട് കെ പി കേശവമേനോൻ ഹാളിൽ എം കെ രാഘവൻ എം പി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും

നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന നവോത്ഥാന യാത്ര മറ്റന്നാൾ പര്യടനം തുടങ്ങും

തിങ്കളാഴ്ച വടകര ലോകനാർ കാവി ലാണ് സമാപനം മലപ്പുറം ജില്ലയിലെ തിരൂരും വാക്കാടും മന്ത്രി ഡോ

ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേ ധം സമരക്കാരെ പൊലീസ് ബലം പ്രയോഗിച്ച് നീക്കി കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്ന സ്ഥാപ നങ്ങൾക്കെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ നടപടിയാരംഭി ച്ചു

അടുത്ത ദിവസം മുതൽ കനോലി കനാലിലേക്ക് എത്തുന്ന ഓവുചാലുക ളിൽ മലിനജല കുഴൽ ബന്ധിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെ ത്തുന്നതിന് സ്ലാബ് നീക്കം ചെയ്ത് പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു

കൃഷ്ണൻ നിർദ്ദേശിച്ചു

സുനാമിയുടെയും ഓഖി ദുരന്ത ത്തിന്റെയും പശ്ചാത്തലത്തിൽ പാരിസ്ഥിതിക പ്രശ് നം കണക്കിലെടുത്താവണം പുതിയ നിർമ്മാണമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു

ഇന്നും നാളെയും തിങ്കൾ ബുധൻ ദിവസങ്ങളിലും കോയമ്പത്തൂർ തൃശൂർ പാസഞ്ചർ വൈകിട്ട് ഏഴരയ്ക്ക് ഷൊർണ്ണൂരിൽ യാത്ര അവസാ നിപ്പിക്കും